എം

ഇത് ദേശീയ ശരാശരിയുടെ പകുതിയാണെന്നും മന്ത്രി

ത ഇടുക്കി മൂലമറ്റം വൈദ്യുതി നിലയത്തിലെ അപകടത്തെ തുടർന്ന് ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പിൻവലിച്ചു

എന്നാൽ ഇത് ദേശീയ ശരാശരിയേക്കാൾ പകുതി മാത്രമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നതെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു

സംസ്ഥാനം നടത്തിയ മികച്ച പ്രതിരോധ പ്രവർത്തനങ്ങളാണ് കൊവിഡ് വന്നുപോയവരുടെ എണ്ണം കുറയാൻ കാരണമെന്നും മന്ത്രി വ്യക്തമാക്കി

സംസ്ഥാനത്ത് തൃശൂർ എറണാകുളം പാലക്കാട് ജില്ലകളിലാണ് മൂന്നാംഘട്ട പഠനത്തിൽ ഉൾപ്പെടുത്തിയത്

രുര അന്താരാഷ്ട്ര തലത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾക്കനുസരിച് സംസ്ഥാനത്തും വൈദ്യുതിമേഖല മാറ്റത്തിന്റെ പാതയിലാണെന്നും ഇതിനനുസരിച്ചു ഉപഭോക്താക്കൾക്ക് സേവനങ്ങൾ വിപുലീകരിക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു സമ്പൂർണ വൈദ്യുതീകരണം വിവിധ ഓൺലൈൻ സേവനങ്ങൾ നടപടി ക്രമങ്ങളുടെ ലഘുകരണം തുടങ്ങി കെ എസ് ഇ ബി യുടെ പ്രവർത്തനങ്ങൾ നാട് ശ്രദ്ധിക്കത്തക്ക വിധത്തിൽ മുന്നോട്ട് പോകുകയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു കെ എസ് ഇ ബിയുടെ വൈദ്യുതി സേവനങ്ങൾ വാതിൽപ്പടിയിൽ ലഭ്യമാക്കുന്ന സർവീസ് ഡോർസ്റ്റെപ് പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരിന്നു അദ്ദേഹം

മന്ത്രിമാരായ എം എം മണി ഡോ തോമസ് ഐസക് വി എസ് സുനിൽകുമാർ എന്നിവർ പങ്കെടുത്ത ഓൺലൈൻ യോഗത്തിലാണ് മുഖ്യമന്ത്രി ഇക്കാര്യം അറിയിച്ചത് രും തൃശൂർ ഇരിങ്ങാലക്കുടയിലെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ മെഡിസിൻ ഏന്റ് റീഹാബിലിറ്റേഷൻ നിപ്മറിനെ മികവിന്റെ കേന്ദ്രമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രഖ്യാപിച്ചു

രുര പൊലീസ് പരിശീലന കേന്ദ്രങ്ങൾക്ക് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്ന പുരസ്കാരത്തിന് തൃശൂരിലെ കേരളാ പൊലീസ് അക്കാഡമി അർഹമായി ദക്ഷിണ മേഖലയിലെ ഏറ്റവും മികച്ച പരിശീലന കേന്ദ്രമായാണ് കേരളാ പൊലീസ് അക്കാഡമിയെ തെരഞ്ഞെടുത്തത്

നോൺ ഗസറ്റഡ് ഓഫീസർ വിഭാഗത്തിലെ ഉദ്യോഗസ്ഥർക്ക് നൽകിയ പരിശീലനമാണ് അവാർഡിന് അർഹമാക്കിയത് ഗസറ്റഡ് ഓഫീസർമാരുടെ പരിശീലന വിഭാഗത്തിൽ രാജസ്ഥാൻ പൊലീസ് അക്കാഡമിക്കാണ് അവാർഡ് രംഭ ഇടുക്കി മൂലമറ്റം വൈദ്യുതനിലത്തിലെ അപകടത്തെതുടർന്ന് സംസ്ഥാനത്ത് ഏർപ്പെടുത്തിയ വൈദ്യുതി നിയന്ത്രണം പിൻവലിച്ചു ആറ് ജനറേറ്ററുകളിൽ നാലെണ്ണം പ്രവർത്തനക്ഷമമാണ്

രംഭ പെരിയ ഇരട്ടെക്കൊലക്കേസ് അന്വേഷിക്കുന്ന സി ബി ഐ സംഘം കാസർകോട് ഉദുമയിലെ സി പി ഐ എം ഏരിയ കമ്മറ്റി ഓഫീസിൽ പരിശോധന നടത്തി പരിശോധന മണിക്കൂറുകളോളം നീണ്ടു കൃപേഷിനേയും ശരത് വെട്ടിക്കൊലപ്പെടുത്തുമ്പോൾ ലാലിനെയും ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്രതികൾ കത്തിച്ച സ്ഥലത്തും സി ബിഐ പരിശോധന നടത്തി കേസിലെ പ്രധാന പ്രതിയായ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠനെയും സി ബി ഐ ചോദ്യം ചെയ്തു

ടി കെ മോഹൻബഗാന് തുടർച്ചയായ രണ്ടാം ജയം പനാജിയിൽ നടന്ന മത്സരത്തിൽ ഒഡീഷ എഫ് സി യെ ഒന്നിനെതിരെ നാലു ഗോളുകൾക്കാണ് ബഗാൻ തോൽപിച്ചത്

വൈകിട്ട് അഞ്ചിന് ജംഷഡ്പൂർ എഫ് സി ഈസ്റ്റ് ബംഗാൾ എഫ് സി യെ നേരിടും

നൂറാം ടെസ്റ്റിൽ ക്യാപ്റ്റൻ ജോ റൂട്ട് നേടിയ ഇരട്ട സെഞ്ച്വുറിയാണ് ഇംഗ്ലണ്ടിനെ മികച്ച സ്കോറിലേക്ക് നയിച്ചത്

രുര ഭക്ഷ്യ ഉൽപാദന രംഗത്ത് സ്വയംപര്യാപ്തത കൈവരിക്കുകയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി ഇ

സംസ്ഥാന യുവജന കമ്മീഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച സംസ്ഥാനതല യുവകർഷക സംഗമം പാലക്കാട് മലമ്പുഴയിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി

തൊഴിൽ ഉറപ്പു വരുത്തുന്ന ട്രേഡുകൾ ആരംഭിക്കുകയും നൈപുണ്യ വികസന പരിശീലന പരിപാടികൾ ആവിഷ്ക്കരിക്കുകയും ചെയ്തതായും മന്ത്രി അറിയിച്ചു കോഴിക്കോട് പേരാമ്പ്ര മുതുകാട് ഗവ ഐടിഐയുടെ കെട്ടിട ശിലാസ്ഥാപനം നിർവ്വഹിക്കുകയായിരുന്നു ടി പി രാമകൃഷ്ണൻ രുര പാലക്കാട് കുളപ്പുള്ളി പാതയിലെ കണ്ണിയപുറം പാലം ഗതാഗതത്തിന് തുറന്നു കൊടുത്തു പുതിയ പാലവും നവീകരിച്ച പഴയ പാലവും മന്ത്രി ജി സുധാകരൻ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പാലം യാഥാർഥ്യമായതോടെ പ്രദേശത്ത് നാലുവരിപ്പാതയുടെ സൌകര്യമാണു ലഭ്യമായതെന്ന് മന്ത്രി പറഞ്ഞു രദര കോഴിക്കോട് ജില്ലയിലെ കാക്കേരി പാലത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനം മന്ത്രി ജി സുധാകരൻ വീഡിയോ കോൺഫറൻസിലൂടെ നിർവഹിച്ചു

രുദ ചെന്നൈ എഗ്മോർ ഗുരുവായൂർ പ്രതിദിന സ്പെഷ്യൽ ട്രെയിൻ ഇന്നു മുതൽ ആറു ദിവസം എറണാകുളത്ത് യാത്ര അവസാനിപ്പിക്കും

എന്നാൽ ഗുരുവായൂർ ചെന്നൈ എഗ്മോർ പ്രതിദിന സ്പെഷ്യൽ ട്രെയിൻ പതിവ് പോലെ ഗുരുവായൂർ നിന്ന് രാത്രി പുറപ്പെടും രുഭ ശബരിമല വിഷയത്തിൽ നിയമനിർമാണം നടത്താൻ സംസ്ഥാന ഗവണ്മെന്റ് എന്തുകൊണ്ട് തയ്യാറായില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പളളി രാമചന്ദ്രൻ ആവശ്യപ്പെട്ടു യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിയമനിർമാണം നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു ഡി സി സി അധ്യക്ഷൻമാരുടെയും കെ പി സി സി ഭാരവാഹികളുടെയും യോഗത്തിനു ശേഷം കൊച്ചിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മുല്ലപ്പളളി

എഫും യു

ഇതു വലിയ അപകടത്തിലേക്ക് നയിക്കുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു ശബരിമലയിൽ ആചാരലംഘനത്തിന് നേതൃത്വം നൽകിയത് മുഖ്യമന്ത്രി പിണറായി വിജയനാണെന്നും സുപ്രീംകോടതി വിധി വന്നശേഷം ചർച്ചചെയ്യും എന്നു പറയുന്നത് വോട്ട് തട്ടാനുളള അടവാണെന്നും കൃഷ്ണദാസ് കുറ്റപ്പെടുത്തി രുമ ശബരിമല യുവതീപ്രവേശനത്തിനെതിരെ നിയമം നിർമിക്കുമെന്ന യുഡിഎഫിന്റെ പ്രഖ്യാപനം ജനങ്ങളെ പറ്റിക്കുന്ന പരിപാടിയാണെന്ന് സിപിഐ എം സംസ്ഥാന സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന എ വിജയരാഘവൻ പറഞ്ഞു സുപ്രീംകോടതിയുടെ വിശാലബെഞ്ചിന്റെ പരിഗണനയിലിരിക്കുന്ന വിഷയത്തിൽ നിയമം ഉണ്ടാക്കാൻ സാധിക്കില്ലെന്ന് അദ്ദേഹം തിരുവന്തപുരത്ത് പറഞ്ഞു കോടതി എടുക്കേണ്ട തീരുമാനം നിയമസഭയ്ക്ക് എടുക്കാൻ കഴിയില്ലെന്നും കോടതി തീരുമാനിച്ചാൽ അതിനനുസരിച്ച് പ്രവർത്തിക്കുകയാണ് ഗവൺമെന്റ് ചെയ്യേണ്ടതെന്നും അതാണ് നിയമവാഴ്ച്ചയെന്നും വിജയരാഘവൻ അഭിപ്രായപ്പെട്ടു രുമ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പി

സി റാങ്ക്പട്ടികകളുടെ കാലാവധി നീട്ടിയത് ഉദ്യോഗാർഥികളുടെ കണ്ണിൽ പൊടിയിടാനാണെന്ന് യുവമോർച്ച സംസ്ഥാന പ്രസിഡന്റ് സി ആർ പ്രഫുൽ കൃഷ്ണൻ കോഴിക്കോട്ട് കുറ്റപ്പെടുത്തി